കോവിഡ് മഹാമാരി തൊഴിൽ സംസ്കാരത്തിൽ ഏറെ മാറ്റങ്ങൾ കൊണ്ടു വന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ബി എസ്

കേരള ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കും

സ്കിൽ ഇന്ത്യ ദൌത്യം രൂപീകരിച്ചതിന്റെ അഞ്ചാം വാർഷികം കൂടിയാണിന്ന് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയം ഡിജിറ്റൽ കോൺക്ലേവും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്

നൈപുണ്യ വികസനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദ്ദി ഇതിനായി പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചതെന്ന് കേന്ദ്ര്മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നൈപൂണ്യ വികസന മന്ത്രാലയം രാജ്യത്തെ യുവതലമുറയെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം ടിറ്ററിൽ അറിയിച്ചു

പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയൻ എന്നിവർ സംയുക്തമായി യോഗത്തിൽ അധൃക്ഷത വഹിക്കും ഇന്തൃയ്ക്കും യൂറോപ്പിനുമിടയിലെ സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങളെ സമ്മേളനം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു

കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളും യോഗത്തിൽ ചർച്ചാ വിഷയമാകും

ഡൽഹിയിലും തമിഴ്നാട്ടിലും ആകെ രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തിന് മുകളിലാണ്

ഈ വർഷം അവസാനത്തോടെ മാത്രമേ രോഗ നിയന്ത്രണം കൈവരിക്കാൻ കഴിയൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു

യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫസ്റ്റ്ലൈൻ ട്രീറ്റ്മെൻററുകളും റിവേഴ്സ് കാറൻറൈൻ സെൻററുകളും ഒരുക്കുന്നതിനടക്കം ജീല്ലാ കലക്ടർമാർക്ക് ഈ ഓഫീസർമാർ സഹായം നൽകും

രോഗബാധിതരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ റഷ്യ പെറു ചിലി മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയ്ക്ക് പിന്നിൽ

കോവിഡ് പ്രതിസന്ധി നിലനിൽക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും സഭ സമ്മേളിക്കുക

മൂവാറ്റുപുഴ സ്വദ്ദേശി ജലാൽ മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് ്ഷാഫി അർജിത് അലി എന്നുവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഇപ്പ്ര്രെ ഇന്ന് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾശ്ക്കാ്യുള്ള കോടതിയിൽ ഹാജരാക്കും

ബി എസ്

വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് അഭിനന്ദനം അറിയിച്ചു

ഉച്ചക്ക് രണ്ടിന് പൊതുവിദ്യാഭ്യാസ മന്ത്രി സി

ഫലം ഇൻഫർമേഷൻ പബ്ളിക് റിലേഷൻസ് വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പി

ആത്മനിർഭർ പാക്കേജിനു ക്രൂീഴിൽ ഭാഗിക വായ്പാ ഗ്യാരന്റി പദ്ധതി പുനരുജ്ജീവിപ്പിക്കുമെന്ന് ധനമന്ത്രി നിർമല സീതാരാമൻ ബാങ്കിതര സാമ്പത്തിക് സ്ഥാപനങ്ങളുടെ ബാധ്യതകൾ പരിഹരിക്കുന്നതിനായാണ്ിത്

എൻ സുരക്ഷാ സമിതിയിൽ ഇന്ത്യ താത്കാലിക അംഗത്വം നേടിയതിനു ശേഷം ഐക്യരാഷ്ട്ര സഭയിൽ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ അഭിസംബോധനയാണിത് അന്താരാഷ്ട്ര തലത്തിലെ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നയരൂപീകരണം ശുപാർശ ചെയ്യുന്ന സംവിധാനമാണ് ഐക്യരാഷ്ട്ര സഭാ സാമ്പത്തിക സാമൂഹിക സമിതി

ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നയത്തിനെതിരെ ഹാർവാഡ് സർവ്വകലാശാലയും മസാച്ചുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടും കോടതിയെ സമീപിച്ചിരുന്നു ഇതേ അതുടർന്നാണ് നടപടി പിൻവലിക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചത്

പ്രസിഡന്റ് ഡോൺശിസ് ട്രംപ് ഒപ്പുവച്ചു ഹോങ്കോങ് ജനതയുടെ സ്വാതന്ത്യൂര് ഹനിക്കുന്നതിനെതിരെയുള്ള നടപടികൾക്ക് ബിൽ യൂഎസ് ഭരണകൂടത്തെ സഹായിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് വൃക്ത്മാക്കി ഇനി മുതൽ ചൈനയ്ക്ക് ലഭിക്കുന്ന അതേ പരിഗ്ണന തന്നെയായിരിക്കും ഹോങ്കോങിനും നൽകുക